രണ്ടര കോടിയിലധികം വോട്ടർമാർ ദേശീയ നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവം ത ഇന്ന് രാത്രി കൊച്ചിയിലെത്തുന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ നാളെ എൻഡിഎ സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും

പത്രിക പിൻവലിക്കാൻ സമയപരിധി ഇന്നലെ സമാപിച്ചപ്പോൾ അന്തിമ പോരാട്ട ചിത്രം മണ്ഡലങ്ങളിൽ തെളിഞ്ഞു വോട്ടെടുപ്പ് അടുത്തോടെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ ദേശീയ നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാവുകയാണ്

വോയ്സ് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവുമധികം പേർ മത്സരരംഗത്ത്

ഏറ്റവും കുറച്ച് സ്ഥാനാർഥികൾ മത്സരിക്കുന്നത് വയനാട് ജില്ലയിൽ

സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ

മെയ് രണ്ടിന് വോട്ടെണ്ണും

രാത്രി നെടുമ്പാശേരി വിമാനത്താവളത്തിൽ എത്തുന്ന അദ്ദേഹം നാളെ രാവിലെ തൃപ്പൂണിത്തുറയിലേക്ക് പോകും പത്തരക്ക് സ്റ്റാച്യു ജംഗ്ഷനിൽ നിന്ന് പൂർണത്രയീശ ക്ഷേത്ര ജംഗ്ഷനിലേക്ക് റോഡ് ഷോയിൽ പങ്കെടുക്കും പൊൻകുന്നത്തും പുറ്റിങ്ങൽ ദേവീക്ഷേത്ര മൈതാനത്തും പൊതുസമ്മേളനങ്ങളിൽ അമിത്ഷാ പങ്കെടുക്കും വൈകീട്ട് കഞ്ചിക്കോട് എത്തുന്ന അദ്ദേഹം സത്രപടി വരെ റോഡ്ഷോയിൽ പങ്കെടുത്ത് കോയമ്പത്തൂരിലേക്ക് പോകും ദേഴ എൽഡിഎഫ് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ആലപ്പുഴയിൽ അഞ്ച് പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കും രാവിലെ തിരുനല്ലൂർ ആലപ്പുഴ ഉച്ചകഴിഞ്ഞ് കായംകുളം മാവേലിക്കര ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലാണ് മുഖ്യമന്ത്രിയുടെ പരിപാടി രുര സംസ്ഥാനത്തെ എല്ലാ മേഖലയും ലോകോത്തര നിലവാരത്തിലെത്തിക്കുകയാണ് എൽഡിഎഫിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വ്യവസായ മേഖലയിൽ വരാൻ പോകുന്ന പതിനായിരം കോടി രൂപയുടെ നിക്ഷേപം വൻ തോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും മുഖ്യമന്ത്രി കോട്ടയം ജില്ലയിൽ എൽഡിഎഫിന്റെ വിവിധ പറഞ്ഞു

തൊഴിൽ രഹിതരില്ലാത്ത നാടെന്ന നിലയിലേക്ക് കേരളം മാറുകയാണ് പ്രവർത്തിക്കുന്നത് മാത്രം പറയുന്ന മുന്നണിയാണ് എൽഡിഎഫ് എന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നൽകിയ ഏതാണ്ടെല്ലാ വാഗ്ദാനങ്ങളും നടപ്പാക്കിയതായും മുഖ്യമന്ത്രി പറഞ്ഞു രും യുഡിഎഫിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് കോട്ടയം ജില്ലയിൽ പര്യടനം നടത്തും

രും സംസ്ഥാനത്ത് യുഡിഎഫ് അധികാരത്തിലെത്തിയാൽ ന്യായ് പദ്ധതി നടപ്പാക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ആഴക്കടൽ മത്സ്യബന്ധനം അമേരിക്കൻ കമ്പനിക്ക് നൽകിയതിലൂടെ മുഖ്യമന്ത്രി മത്സ്യത്തൊഴിലാളികളെ പിന്നിൽ നിന്ന് കുത്തിയെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ആലപ്പുഴ ജില്ലയിൽ യുഡിഎഫ് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ സംസ്ഥാനത്ത് വലിയൊരു മാറ്റം അനിവാര്യമാണെന്നും പുതിയ ഭാവനകളാണ് വേണ്ടെതെന്നും രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു അർഹതപ്പെട്ട ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാതെ സ്വന്തക്കാരെ തിരികികയറ്റുകയാണ് എൽഡിഎഫ് ഗവൺമെന്റ് ചെയ്തതെന്നും അദ്ദേഹം ആരോപിച്ചു

രുമ സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇന്ന് കണ്ണൂർ ജില്ലയിലെ എൽഡിഎഫ് തിരഞ്ഞെടുപ്പു റാലികളിൽ പങ്കെടുക്കും വൈകീട്ട് പഴയങ്ങാടിയിലും ശ്രീകണ്ഠപുരത്തും തെരഞ്ഞെടുപ്പു റാലികൾ യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും രംഭ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് കണ്ണൂർ ജില്ലയിൽ യുഡിഎഫ് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തും

അർഹരായ വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ എത്തേണ്ട സ്ഥലം ബന്ധപ്പെട്ട റിട്ടേണിംഗ് ഓഫീസർ അറിയിക്കും

ഉച്ച കഴിഞ്ഞ് ഒന്നരക്ക് മത്സരം ആരംഭിക്കും

രുര കോവിഷീൽഡ് വാക്സിന്റെ രണ്ടു ഡോസുകൾ തമ്മിലെ ഇടവേള നാല് മുതൽ എട്ട് ആഴ്ച വരെയായി വർധിപ്പിക്കാൻ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് കേന്ദ്രം നിർദേശം നൽകി നിലവിലെ ശാസ്ത്രീയ തെളിവുകൾ പ്രകാരം ആറ് മുതൽ എട്ടുവരെ ആഴ്ചകൾക്കിടയിൽ രണ്ടാം ഡോസ് നൽകിയാൽ സംരക്ഷണം വർധിക്കുമെന്ന നിഗമനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇടവേള പുനക്രമീകരിച്ചത്

രംഭ ഇന്ന് ലോക കാലാവസ്ഥ ദിനം സമൂഹത്തിന്റെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും ദേശീയ അന്തർദേശീയ കാലാവസ്ഥാ സേവനങ്ങളുടെ സംഭാവന പരിഗണിച്ചാണ് ദിനാചരണം

സമുദ്രം നമ്മുടെ കാലാവസ്ഥയും കാലഭേദവും എന്നതാണ് ഈ വർഷത്തെ കാലാവസ്ഥ ദിന പ്രമേയം രുര കൊല്ലം ജില്ലയിൽ സൂര്യാതപ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത വേണമെന്ന് ഡി

രംഭ പാലക്കാട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ നിന്നായി കഞ്ചാവും ലഹരിമരുന്നും കടത്തിയ അഞ്ച് പേർ പിടിയിലായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് ഇവരെ പിടികൂടിയത് കോഴിക്കോട് തൃശൂർ ലക്ഷദ്വീപ് സ്വദേശികളും രണ്ട് അതിഥി തൊഴിലാളികളുമാണ് പിടിയിലായത്